ഒരുക്കങ്ങൾ പൂർത്തിയായി

പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനുള്ള വൃവസായ പ സുരക്ഷാ കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പു വച്ചു

കേരളത്തിൽ കോഴിക്കോട്ട് തിരുവമ്പാടിയിൽ വീണ്ടും പ മാവോയിസ്റ്റ് സാന്നിധ്യം

യു എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിനെതിരായ പ ഇംപീച്ച്മെന്റ് പ്രമേയം ജനപ്രതിനിധി സഭയിൽ പാസായി

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

സാന്താൾ പർഗാനി മേഖലയിലെ സാഹിബ് ഗഞ്ച് പാക്കൂർ ധുംക ജംതാര ദിയോഗഡ് ഗോധ എന്നി ജില്ലകളിലാണ് നാളെ പോളിംഗ് ബോറിയോ ബാർഹയിത് ലിത്തിപ്പാറ മഹേഷ്പൂർ സിക്കാരിപ്പാറ എന്നി അഞ്ച് മണ്ഡലങ്ങളിൽ രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് മണിക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അവസാനിക്കും

വിതരണം പൂർത്തിയായതായും ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ബൂത്തുകളിലേക്ക് തിരിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിനയ്കുമാർ ചൌബെ അറിയിച്ചു വോട്ടെടുപ്പ് സുഗമമായി നടത്താനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്

രാജൃത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ സശസ്ത്ര സീമാ ബല്ലിന്റെ സേവനം നിർണ്ണായകമാണ് ശത്രുക്കൾക്കെതിരെ പോരാടുന്ന സേനാംഗങ്ങളെ രാഷ്ട്രം അഭിവാദ്യം ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു

കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കെ

വേണുഗോപാൽ നിയമം സ്റ്റേ ചെയ്യണമെന്ന ഹർജ്ജിക്കാരുടെ ആവശ്യത്തെ എതിർത്തു നിയമം വിജ്ഞാപനം ചെയ്തതിനു ശേഷം അത് സ്റ്റേ ചെയ്യുന്നത് വിലക്കുന്ന നാല് ഉത്തരവുകൾ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി പൌരത്വ ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി ഇന്നലെ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു

പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റം സാധ്യമാക്കുന്ന വ്യാവസായിക സുരക്ഷാ കരാറിൽ ഇരുരാഷ്ട്രങ്ങളും ഒപ്പുവച്ചു

എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോയും പ്രതിരോധ സെക്രട്ടറി മാർക് എസ്പറും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ വിദേശകാര്യമന്ത്രി എസ്

പ്രതിരോധ മേഖലയിൽ ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്നും അത് കൂടുതൽ മെച്ചപ്പെടുമെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി എസ്പർ നാലു നേതാക്കളുടെയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ഈ സ്റ്റേഷനുകളിൽ കയറുന്നതിനും പുറത്തിറങ്ങുന്നതിനുമുളള ഗേറ്റുകൾ അടച്ചതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ ടിറ്ററിൽ അറിയിച്ചു

എന്നാൽ സെക്രട്ടേറിയറ്റ് സ്റ്റേഷനിൽ ട്രെയിൻ മാറികയറാനുളള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഇത് പ്രകാരം സംസ്ഥാനത്തുടനീളം പൊതുനിരത്തിൽ കൂട്ടം കൂടുന്നത് നിരോധിച്ചിരിക്കുകയാണ് കുട്ടികൾ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും പ്രതിഷേധക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഡി ജി പി ഒ പി സിംഗ് ട്വിറ്ററിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു

പ്രമേയം ഇനി സെനറ്റ് പരിഗണിക്കും കൂടുതൽ വിവരങ്ങളുമായി സോഫിയ വോയിസ് അധികാര ദുർവിനിയോഗം യു എസ് കോൺഗ്രസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തൽ എന്നീ കൂറ്റങ്ങൾ ചൂമത്തിയാണ് ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചത്

മണിക്കൂറുകൾ നീണ്ട സമഗ്ര ചർച്ചകൾക്ക് ശേഷമാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ ജനപ്രതിനിധി സഭ തീരുമാനിച്ചത് പ്രമേയം ഇനി യു എസ് പാർലമമെന്റിന്റെ ഉപരിസഭയായ സെനറ്റിന്റെ പരിഗണനയിൽ വരും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് സെനറ്റിൽ ഭൂരിപക്ഷം അതുകൊണ്ട് ട്രംപിന് ഭരണത്തിൽ തുടരാനാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇംപീച്ച്മെന്റിന് വിധേയമാകുന്ന മൂന്നാമത്തെ യു എസ് പ്രസിഡന്റാണ് ട്രംപ് അടുത്ത വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ എതിരാളിയാകാൻ സാധ്യതയുള്ള ഡമോക്രാറ്റ് നേതാവ് ജോ ബൈഡനെതിരെ ഉക്രയനിൽ കേസന്വേഷണത്തിനായി ഉക്രയിൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെല്ലൻസ്കിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് കേസ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പോർട്ടുഗീസ് പ്രധാനമന്ത്രി നാളെ ഔദ്യോഗിക ചർച്ച നടത്തും

പ്രദേശത്തെ ചായകടയിലെത്തിയ സ്ഫം പിന്നീട് ഒരു വീട്ടിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചാണ് മടങ്ങിയത് സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് അന്വേഷണം തുടങ്ങി

വിപണി വിലയ്ക്കാണ് ഇത് നൽകുന്നത് പയറുവർഗ്ഗങ്ങളുടെ ലഭൃത ഉറപ്പാക്കി വില കയറ്റം നിയന്ത്രിക്കുന്നതിനാണ് നടപടി ന്യൂഡൽഹിയിൽ കേന്ദ്ര ഉപഭോക്തൃകാരൃ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത്

സൈനീക പോസ്റ്റുകൾക്ക് നേരെയും ജനവാസ പ്രദേശങ്ങളിലുമാണ് വെടിവയ്പ് ഉായത്

ബോറിസ് ജോൺസണിലും കൺസർവേറ്റീവ് പാർട്ടിയിലും ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് അദ്ദേഹത്തെ വീണ്ടും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തിലൂടെ പ്രകടമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രേമോദി കൂട്ടിച്ചേർത്തു

അവസാന റൌണ്ട്റോബിൻ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തായ്ലാന്റിനെയാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്

മത്സര വേദികളുടെ പരിശോധന തുടരുകയാണ്

കശ്മീർ മേഖലയിൽ മഞ്ഞുവീഴ്ച തുടരുകയാണ്